തെരഞ്ഞെടുപ്പ്

കനത്ത സുരക്ഷയിൽ ശബരിമല സന്നിധാനവും പരിസരവും

സരിതാദേവിയും മനീഷ മൌനയും പ്രീ കാർട്ടറിൽ

പ്രധാനമന്ത്രിയായശേഷം ശ്രീ മോദിയുടെ ആദ്യ മാലിദ്വീപ് സന്ദർശനമാണിത് അടിസ്ഥാന സൌകര്യം ആരോഗ്യസുരക്ഷ മാനവവിഭവശേഷി വികസനം സമ്പർക്കം മുതലായ മേഖലയകളിലുൾപ്പെടെ തങ്ങളുടെ വികസന മുൻഗണനകളുടെ സാക്ഷാൽക്കാരത്തിനായി ഒന്നിച്ചു പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷം ശ്രീ മോദി മാലദ്വീപ് ഗവൺമെന്റിനെ അറിയിക്കും ജനാധിപത്യം നിമയവാഴ്ച സമൃദ്ധമായ ഭ്യാവി എന്നിവയ്ക്കായുള്ള ജനങ്ങളുടെ അഭ്രീലാഷമാണ് മാലിദ്വീപിൽ അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

പാർട്ടിയേതര അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ്

വോട്ടെടുപ്പ് കഴിഞ്ഞാലുടൻ വോട്ടെണ്ണൽ ആരംഭിക്കും

പ്രാദേശിക നഗര സ്ഥാപനങ്ങളിലേയ്ക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിടെ നാല് ഘട്ടങ്ങളിലായി പൂർത്തിയാരുന്നു

ഏഴ് സ്ഥാനാർത്ഥികളുടെ പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ജെ പി നദ്ദയാണ് പുറത്തിറക്കിയത് വനിതാമോർച്ച പ്രസിഡന്റ് അകുല വിജയ ടി

എസ് പ്രസിഡന്റും മുഖ്യമന്ത്രിയുമായ ചന്ദ്രശേഖർ റാവുവിന്റെ ഗജ്വേൽ മണ്ഡലത്തിൽ മൽസരിക്കും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിജെപി പ്രസിഡന്റ് അമിത് ഷാ കോൺഗ്രസ്സ് അദ്ധ്യക്ഷൻ രാഹുൽഗാന്ധി എന്നിവർ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു

ജെ

മധ്യപ്രദേശിൽ കോൺഗ്രസ് പാർട്ടി ആരുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്തുന്നതെന്ന് ശ്രീ

അതേസമയം രാജ്യത്തുണ്ടായ ഏറ്റവും ഭീമമായ അഴിമതിയാണ് നോട്ട് നിരോധനമെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ആരോപിച്ചു സാഗർ ജില്ലയിലെ ദിയോരി പട്ടണത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയെ ശ്രീ

അധികാരത്തിൽ കോൺഗ്രസ് വന്നാൽ യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പാക്കുമെന്ന് ശ്രീ

ബർഗത് മണ്ഡല എന്നിവിടങ്ങളിൽ അദ്ദേഹം റാലികളെ അഭിസംബോധന ചെയ്തു ന്യൂസ് ഡസ്ക് ആകാശവാണി

ദേശീയതലത്തിൽ ഡിജിറ്റൽ ആശയവിനിമയത്തിൽ സുരക്ഷ ഉറപ്പാക്കാനാണ് ഗവൺമെന്റ് സംവിധാനം ഏർപ്പെടുത്തുന്നതെന്ന് ടെലിക്ടോം മന്ത്രി മനോജ് സിൻഹ അറിയിച്ചു മൊബൈൽഫോണുകൾ ഉൾപ്പെടെയുള്ളചില ഉൽപ്പന്നങ്ങൾക്ക് നിർബന്ധിത പരിശോധന ഉർപ്പാക്കാൻ അടുത്തവർഷം ഏപ്രിൽ വരെ ടെലികോം വകുപ്പ് സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഇന്തൃയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതും വിൽക്കുന്നതുമായ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പരിശോധന ബാധകമാണ്

ആദിവാസി വൈദഗ്ദ്ധ്യവും സംസ്കാരവും ഭക്ഷണരീതികളും വ്യാപാരവും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഡൽഹി ഹാത്തിലാണ് പരിപാടി

ജനസംഖ്യയുടെ എട്ടുശതമാനത്തിലേറെ ആദിവാസികളാണെന്നും അവരുടെ കൂടി വികസനം ഉൾക്കൊളുന്നതാണ് രാജ്യത്തിന്റെ സമഗ്ര വികസന ലക്ഷ്യമെന്നും ജുവൽ ഓറം പറഞ്ഞു

സഞ്ചരിക്കുന്ന വൈദ്യസംഘങ്ങളെ ദുരന്ത ബാധിത മേഖലകളിൽ നിയോഗിച്ചിട്ടുണ്ട്

അടിയന്തിര ദുരിതാശ്വാസ് പ്രവർത്തനം പൂർത്തിയാക്കിയശേഷം നഷ്ടത്തിന്റെ കണക്കെടുപ്പ് നടത്തുമെന്ന് റവ്യൂവകുപ്പ് അറിയിച്ചു

മുഖ്യമന്ത്രി ഇ

കേന്ദ്രത്തിൽ നിന്ന് സാധ്യമായ എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് തന്റെ മനസെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു പരിക്കേറ്റ് ചികിൽസയിലുള്ളവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടേയെന്ന് പ്രാർത്ഥിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു

ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ രാത്രികാല യാത്രകൾ ഒഴിവാക്കേണ്ടതാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലയിലേക്കുള്ള യാത്രയും ഒഴിവാക്കാൻ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്

വൃശ്ചികം ഒന്നായ ഇന്ന് രാവിലെ ക്ഷേത്രനട തുറന്നപ്പോൾ അയ്യപ്പനെ ദർശിക്കാൻ തീർത്ഥാടകരുടെ വൻ സംഘമാണ് എത്തിയത്

പുതിയ മേൽശാന്തിയായി എൻ വാസുദേവൻ നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തിയായി എം എൻ നാരായണൻ നമ്പൂതിരി എന്നിവർ ഇന്നലെ ചുമതല്യേറ്റു ഇന്ന് പുലർച്ചെ നട തുറന്നത് പുതിയ മേൽശാന്തിമാർാണ്

ഹിന്ദു ഐക്യവേദി അധ്യക്ഷ കെ പി ശശികലയെ ഇന്നലെ മരക്കൂട്ടത്തു വച്ച് പോലീസ് തടഞ്ഞു തിരികെപ്പോകണമെന്ന് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് ശ്രീമതി ശശികലയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് ആറ് വരെ ഹിന്ദു ഐക്യവേദിയും ശബരിമല കർമ്മസമിതിയും ഹർത്താലിന് ആഹ്വാനം നൽകിയിട്ടുണ്ട് അതിനിടെ സന്നിധാനത്ത് പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വംബോർഡ് അദ്ധ്യക്ഷൻ എ പദ്മകുമാർ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുമായി കൂടിക്കാഴ്ച നടത്തും യുവതീ പ്രവേശനം സംബന്ധിച്ച വിധി നടപ്പാക്കാൻ സാവകാശം തേടി സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് ദേവസ്വംബോർഡ് ഇന്നലെ വൃക്തമാക്കിയിരുന്നു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം സമാധാനപരമായ രീതിയിൽ പൂർത്തീകരിക്കുന്നതിന് എല്ലാവരും സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്

സരിതാ ദേവിയും മനീഷ മൌനയും പ്രീക്ഷാർട്ടറിൽ കടന്നു

ലോക ചാമ്പ്യനായ കസാക്സ്ഥാൻ താരം ദിന സൊലമാനാണ് മനീഷയുടെ എതിരാളി

ഉസ്ബെക്കിസ്ഥാന്റെ ജഹംഗിർ മിർസ ടുറോബോവിനെ പരാജയപ്പെടുത്തി